കോവിഡ് വ്യാപനം വർദ്ധീക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ പ്രതിരോധ ്രപവർത്തനങ്ങൾ ഉൌർജ്ജിതമാക്കി

പശ്ചിമ ബംഗാളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് ഇനി നാല് ഘട്ടങ്ങൾ കൂടി

ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദ്രാബാദും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഏറ്റുമുട്ടും

അർഹരായ എല്ലാവർക്കും വാക്സിൻ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ടീക്ക ഉത്സവ് സംഘടിപ്പിക്കുന്നത്

സാമൂഹൃ പരിഷ്ക്കർത്താവായ ജ്യോതിബ ഫൂലെയുടെ ജന്മവാർഷികദിനമായ ഇന്ന് ആരംഭിക്കുന്ന പ്രത്യേക കോവിഡ് വാക്സിനേഷൻ യജ്ഞമായ ടീക്ക ഉത്സവ് ഭരണഘടന ശില്പിയായ ഡോ

അതേസ്മയം യു എസ് നെയും ചൈനയെയും പിന്തള്ളി ലോകത്ത് ഏറ്റവുമ്ധികം വേഗത്തിൽ വാക്സിൻ വിതരണം ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറി

ടീക്ക ഉത്സവിന് തുടക്കം കുറിക്കുന്നതോടെ ഈ കണക്കുകൾ കുതിച്ച് ഉയരാനാണ് സാധ്യത

സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറുമായി ശ്രീ

ദേശീയ ആരോഗ്യ മിഷന്റെ ആഭിമുഖ്യത്തിൽ കൂടുതൽ ആരോഗൃ പ്രവർത്തകരെ നിയമിക്കുന്നതിനുള്ള അടിയന്തിര നടപടി കൈക്കൊള്ളുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി കോവിഡ് പരിശോധന വ്യാപകമാക്കുന്നതിനും ചികിത്സക്കുമായി ദേശീയ ആരോഗൃമിഷന്റെ കൂടുതൽ ധനസഹായം ലഭ്യമാക്കും ഓക്സിജൻ സിലിണ്ടറിന്റെയും വാക്സിന്റെയും ലഭ്യത സംസ്ഥാനത്ത് ഉറപ്പു വരുത്തുമെന്നും അവലോകന യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെ ശ്രീ പ്രകാശ് ജാവദേക്കർ പറഞ്ഞു

നിയമസഭ തിർഞ്ഞടുപ്പിന് പിന്നാലെ കൊവിഡ് രണ്ടാം തരംഗത്തിന്റെ സൂചന നൽകി സംസ്ഥാനത്ത് കൊവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചുയരുകയാണ് ഈ സാഹചരൃത്തിൽ പ്രാദേശിക തലത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് സർക്കാരിന്റെ തീരുമാനം

പൊതുസ്ഥലങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും മറ്റും സന്ദർശകർക്ക് നിയന്ത്രണം കൊണ്ടു വരുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കി

സംസ്ഥാന വ്യാപകമായി പോലീസ് പരിശോധനയും കർശനമാക്കി

രാജ്യത്തെ ആരോഗ്യ മേഖലയിലെ ആവശ്യങ്ങൾട്ട് നിർവ്ഹിക്കുന്നതിൽ ഹോമിയോപ്പതി പ്രധാന പങ്ക് വഹിക്കുന്നത്തി കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷ വർധൻ പറഞ്ഞു നൃൂഡൽഹിയിൽ ഹോമിയോപ്പതി സമഗ്ര വൈദ്യശാസ്ത്രത്തിലേക്ക് മാർഗസൂചകം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നടന്ന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു വൈദൃശാസ്ത്ര ശാഖയെന്ന നിലയിൽ ചിട്ടയും സമഗ്രവുമായ ഗവേഷണങ്ങളിലൂടെ ഹോമിയോപ്പതി പുരോഗതി പ്രാപിക്കുന്നതിൽ ഡോക്ടർ ഹർഷ വർധൻ സംതൃപ്തി പ്രകടിപ്പിച്ചു

മഹാത്മ ഫുലെയുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് അദ്ദേഹത്തെ അനുസ്മരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി

സാമൂഹ്യ പരിവർത്തനത്തിനായുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയും സമർപ്പണവും വരും തലമുറകളിൽ സ്വാധീനമുണ്ടാക്കുമെന്ന് ശ്രീ

ജാതിവ്യവസ്ഥ യ്ക്കെതിരെയും ലിംഗസമത്വത്തിനുമായി മഹാത്മ ജ്യോതിബ ഫുലെ നൽകിയ സംഭാവനകൾ അവിസ്മരണീയമാണെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കറും അനുസ്മരിച്ചു

പശ്ചിമ ബംഗാളിൽ ഇനി വോട്ടെടുപ്പിന്റെ നാല് ഘട്ടങ്ങൾ കൂടി നടക്കാനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കിരൺ ശങ്കർ

ഇതിനു പുറമെ സാന്നിധ്യവും സ്ഥാധീനവും ഉറപ്പിക്കാൻ സി പി എമ്മും കോൺഗ്രസും ഒന്നിച്ചുനിന്ന് പോരാടുന്നുണ്ട്

ആകാശവാണി

ചെന്നൈ ചിദംബരം സ്റ്റ്പ്പിയ്ത്തിലാണ് മത്സരം ഇന്നലെ നടന്ന രണ്ടാം മത്സരത്തിൽ ചെന്നെ സൂപ്പർ കിംഗ് സിനെതിരെ ഡൽഹി ക്യാപ്പിറ്റ്ൽസിന് വിജയം

പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് ഇന്തൃ നേട്ടം കരസ്ഥമാക്കിയത്

ഇരുടീമുകളും നാളെ വീണ്ടും ഏറ്റുമുട്ടും

കൊല്ലപ്പെട്ട മൂന്നു പേരും അൽ ബദർ ഭീകര സംഘടനയിൽ പെട്ടവരാണെന്ന് ജമ്മു കശ്മീർ ഡി ജി പി ദിൽബാഗ് സിംഗ് പറഞ്ഞു

തങ്ങളുടെ മേൽക്കോയ്മ നിലനിർത്തുന്നതിനായി പല കമ്പനികൾക്കും മറ്റ് ഓൺലൈൻ പ്ലാറ്റ് ഫോമുകൾ ഉപയോഗിച്ച് അവരുടെ ഉൽപന്നങ്ങൾ വിൽക്കുന്നതിൽ അലിബാബ വിലക്കേർപ്പെടുത്തിയിരുന്നതായി നിന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി

ഇന്ത്യയുമായി ഇത്തരം കരാറിൽ ഏർപ്പെടുന്ന സാർക്ക് മേഖലയിലെ ആറാമത്തെ രാജ്യമാണ് ശ്രീലങ്ക